ഇത് തികച്ചും ആശ്വാസകരമാ ണ് ഇതുവരെ ഫലം ലഭിച്ച സാമ്പിളുകളിൽ ഒന്നൊഴികെ എല്ലാം നെഗറ്റീവ് ആയിരുന്നുവെന്ന് അവർ പറഞ്ഞു മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ നില തൃപ്തി കരമായി തുടരുകയാണ് രോഗിയ്ക്ക് ഭക്ഷണം കഴി ക്കാനും സംസാരിക്കാനും നടക്കാനും ബുദ്ധിമുട്ടില്ലെ ന്നാണ് ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ

വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത പ്രചരിപ്പിച്ച മൂന്ന് പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളെക്കു റിച്ച് വാർത്ത പ്രചരിപ്പിക്കുന്നതും പരാമർശങ്ങൾ നട ത്തുന്നതും കുറ്റകരമാണെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി

ഇവരെ ഇന്ത്യയിലെത്തിച്ച് പതിനാല് ദിവസം നിരീക്ഷണകേന്ദ്രത്തിൽ താമസിപ്പിക്കും

കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് ചെറുവണ്ണൂർ ഗവ വൊക്കേഷണൽ ഹയർസെക്കൻഡറി സ്കൂൾ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സി വിദ്യാർഥികൾക്കിടയിൽ മികച്ച സേനയായി മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി വിലയിരുത്തി

ഡോക്ടർമാ രുടെ തുടർ വിദ്യാഭ്യാസ പരിപാടി മന്ത്രി ജെ മെഴ്സി ക്കു ട്ടിയമ്മ ഉദ് ഘാടനം പൊതുസമ്മേളനം വൈകിട്ട് മന്ത്രി കെ കെ ഗൈലജ ഉദ്ഘാടനം ചെയ്യും

ബളാൽ വില്ലേജ് ഓഫീസും കാർട്ടേഴ്സും ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി മലയോരത്തെ എല്ലാ പ്രധാന റോഡുകളുടെയും അറ്റ കുറ്റപ്പണി വർഷാവസാനത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു

വാവുള്ള്യങ്കാട് അങ്കൺവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പഴവർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരികയാ ണെന്ന് പുതുക്കോട് എൽ പി സ്കൂളിൽ പാചകപ്പുര ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു

മരങ്ങളും വള്ളിച്ചെടികളും പിടിപ്പിച്ച് നടപ്പു വഴിയോടുകൂടിയായിരിക്കും പാർക്കിന്റെ നിർമ്മാണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലം പുന്നലയിൽ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷനും പത്തനാപുരത്ത് വനശ്രീ ഇക്കോ ഷോപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വന ത്തി ൽ നിന്ന് ആദി വാ സി കൾ ജീവനോപാധിക്കായി ഉത്പന്നങ്ങൾ ശേഖരിക്കുന്നത് തടയില്ലെന്നും മന്ത്രി അറിയിച്ചു മയക്കുമ്രുന്നിനും ലഹരിക്കും അടിമപ്പെട്ടവരെ ചികി ത്സിക്കാൻ ആരോ ഗൃ വ കു പ്പു മായി സഹ ക രിച്ച് എക്സൈസ് വകുപ്പ് ആധുനിക സംവിധാനങ്ങൾ ഒരു ക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാല ക്കാട്ട് എക്സൈസ് ടവർ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

മഹിളാ കിസാൻ ശാക്തീകരണ പദ്ധതിയുടെ സംസ്ഥാനതല സംഗമവും പുരസ്കാര വിതരണവും പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

നെല്ലിന് ദേശീയത്ലത്തിലേക്കാൾ ഒൻപത് രൂപ യോളം കൂടുതൽ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് മുളക് ഉൾപ്പെടെ ഉത്പന്നങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പാലക്കാട് ജില്ലയിൽ സംഭരണ കേന്ദ്രം തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു

പരമ്പരയിലെ നാല് മത്സ രങ്ങളിലും വിജയിച്ച ഇന്ത്യ ഇന്ന്കൂടി വിജയം നേടി യാൽ പുതിയ ലോകറെക്കോർഡിന് ഉടമകളാകും ലലലലലല കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി കേരള ബ്ലാസ്റ്റേഴ് സിനെ തോൽപ്പിച്ചു മൂന്നിന് എതിരെ ആറ് ഗോളിനാണ് ബ്ലാസ്റ്റേ ഴ്സിന്റെ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ

ഐ ലീഗ് ഫുട്ബാളിൽ ക്കോഴിക്കോട്ട് ഇന്ന് ആതിഥേയരായ ഗോകുലം കേരള ഐ ലീഗീലെ നവാഗതരായ ട്രാവുവിനെ നേരിടും

ദേശീയ് സീനിയർ വനിതാ ഹോക്കി ബി ഡിവിഷൻ ചാമ്പൃൻഷിപ്പിൽ സശസ്ത്ര സീമാബലിന് കിരീടം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്റ്റീൽപ്പാന്റ് സ്പോർട്സ് ബോർഡിനെയാണ് അവർ തോൽപ്പിച്ചത്

ഈ മാസം അഞ്ച് മുതൽ ഒൻപത് വരെ ഡൽഹിയി ലാണ് ചാമ്പ്യൻഷിപ്പ്

സ്വീകരണയോഗം വൈകിട്ട് ന്യൂഹോക്കി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടി യമ്മ ഉദ്ഘാടനം ചെയ്യും കായിക പ്രംഗത്തിന്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ വിനോദ സഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്ഥാന ബീച്ച് വോളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബീച്ച് അടിസ്ഥാനമാക്കി കൂടുതൽ കായിക വിനോദങ്ങൾ കൊണ്ടുവന്നാൽ തീരദേശ വിനോദ സഞ്ചാര സാധൃതകൾക്ക് മുതൽകൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു

നവീകരിച്ച ഇടുക്കി ഹിൽവ്യൂ പാർക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇടുക്കി ചെറുതോണി ഡാമുകൾ മുഴുവൻ സമയവും സന്ദർശനത്തിന് തുറന്നുകൊടുക്കുന്നതിന് നടപടി സ്വീകരിച്ചുവരികയാണെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഒരു വർഷത്തിനകം ആയിരം മികച്ച വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി സി

മീനങ്ങാടി ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ് കൂളിലെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇന്നലെ ആറാം നമ്പർ ജനറേറ്ററിന്റെ രണ്ട് പാനലു കളാണ് പൊട്ടിത്തെറിച്ചത് പത്ത് ദിവസം മുമ്പ് രണ്ടാം നമ്പർ ജനറേറ്ററിലും പൊട്ടിത്തെറിയുണ്ടായി

യാത്രാടി ക്കറ്റുകൾ യാത്രക്കാർക്ക് മെട്രോസ്റ്റേഷനിൽ നിന്ന് വാങ്ങാ വുന്നതാണ്

കോളനികളിലെ പശ്ചാ ത്തല സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും റേഷൻകാർഡ് പെൻഷൻ ആധാർ കാർഡ് എന്നിവയുടെ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും യോഗം നിർദ്ദേ ശിച്ചു കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതിന് രണ്ടാം ഘട്ടു ഓൺലൈൻ രജിസ്ട്രേഷൻ

തിയതി നീട്ടി നൽകില്ലെന്നും അവർ വ്യക്തമാക്കി

സംസ്ഥാന പോലീസ്ക്മേധാവിയുടെ പരാതി പരിഹാര അദാലത്ത് ഇന്ന് രാവിലെ കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ തുടങ്ങും പൊതു ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന പരിപാടിയിൽ കോഴിക്കോട് സോണൽ ഐ ജി കോഴിക്കോട് ജില്ല പോലീസ് മേധാവി ജില്ലയിലെ ഡി

പിമാർ തുടങ്ങിയവരും സംബന്ധിക്കും